പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സെക്രട്ടറിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ഭരണ നിർവ്വഹണത്തിൽ ഉദ്യോഗസ്ഥരുടെ ക്രീയാത്മക പങ്കാളിത്തം ഉറപ്പാക്കാൻ നടപടി

ആന്ധ്രാപ്രദേശിന്റെ വികസനത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കൊച്ചി മരടിലെ ഫ്ളാറ്റ് സമുച്ചയം പൊളിക്കുന്നത് സുപ്രീംകോടതി ആറാഴ്ചത്തേക്ക് തടഞ്ഞു

സി

ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക ഇന്ന് വെസ്റ്റിൻഡീസിനെ നേരിടും

ഭരണ നിർവ്വഹണം സംബന്ധിച്ചും വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുടെ ശക്തമായ പങ്കാളിത്തം സംബന്ധിച്ചും ചർച്ച ചെയ്യും ചില കേന്ദ്രമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും ഭരണനിർവ്വഹണത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ആശയപരമായ പങ്കാളിത്തം ഉറപ്പാക്കാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തും ഇത്തരൃത്തിലുള്ള ഉന്നതതല യോഗം ചേർന്നിരുന്നു

ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ യോഗത്തിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങളുമായ ലിൻസ വിദേശ സ്ഥാപനങ്ങളായ ഫെയ്സ്ബുക്ക് ഗൂഗിൾ നെറ്റ്ഫ്ളിക്സ് പോലുള്ള ഡിജിറ്റൽ കമ്പനികൾ ഇന്ത്യയിലും വൻ സാന്നിധ്യം ആയിട്ടുണ്ട്

എന്നാൽ ഇവയിൽ നിന്ന് നികുതി പിരിച്ചെടുക്കാൻ കഴിയുന്നില്ല ഇക്കാര്യത്തിൽ അടിയന്തരമായി തീരുമാനം ഉണ്ടാകണമെന്നാണ് ഇന്ത്യ അന്താരാഷ്ട്ര വേദിയിൽ ആവശ്യപ്പെട്ടത് രാജ്യത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ പോലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നുണ്ട്

വികസിത രാജ്യങ്ങൾ ഇലക്ട്രോണിക് വ്യാപാര നയം രൂപീകരിക്കണമെന്നും ഇന്ത്യ നിർദ്ദേശിച്ചു

ലോകത്തിലെ പ്രികസിത രാജ്യങ്ങളുടേയും വികസ്വര രാജ്യങ്ങളുടേയും സ്ഥയുക്ത വേദിയാണ് ജി

ന്യൂസ് ഡെസ്ക് ആകാശ്പാണി

തിരുപ്പതിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

തെരഞ്ഞെടുപ്പിൽ തെക്കെ ഇന്ത്യയിൽ നിന്ന് ബി ജെ

ക്ക് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടായില്ലെങ്കിലും ജനങ്ങളുടെ ക്ഷേമത്തിനായി എന്നും ഒപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല ബി ജെ

പ്രവർത്തകർ ജനസേവനം നടത്തുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തി രണ്ടാം വട്ടം പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി നടത്തിയ വിദേശ പര്യടനത്തിന് ശേഷം ഡൽഹിയിലേക്ക് മടങ്ങും വഴിയാണ് അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ എത്തിയത് അയൽക്കാർ ആദ്യം എന്ന പരിഗണനയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലദ്വീപിലും ശ്രീലങ്കയിലും പര്യടനം നടത്തിയതെന്ന് വിദേശകാര്യ വക്താവ് അറിയിച്ചു ഭീകരവാദത്തിനെതിരെയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമാധാനത്തിനുമായി യോജിച്ച് നിൽക്കാൻ ഇരുരാജ്യങ്ങളുമായി ഇന്ത്യ ധാരണയിലെത്തി

ഗിരീഷ് കർണാടിന്റെ വിയോഗത്തിലൂടെ സാംസ്കാരിക ലോകത്ത് തീരാനഷ്ടം ഉണ്ടായതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ബഹുമുഖ പ്രതിഭയായ ഗിരീഷ് കർണാടിനെ കലാസൃഷ്ടികളിലൂടെ ലോകം എന്നും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കറും ഗിരീഷ് കർണാടിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി

രാഗം ആനന്ദ ഭൈരവി നീലകുറിഞ്ഞി പൂത്തപ്പോൾ ദ പ്രിൻസ് എന്നീ ചിത്രങ്ങളിലാണ് അദ്ദേഹം വേഷമിട്ടത്

ബാലികയെ ബലാൽസംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിലാണ് പത്താൻകോട്ട് കോടതി വിധി പറഞ്ഞ്ത് രണ്ട് പോലീസുകാർ ഉൾപ്പെടെ ആറ് പ്രതികൾ കൂറ്റക്കാരാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇവരുള്ട് ൾിക്ഷ ഉടൻ തന്നെ വിധിക്കും ഒരാളെ കോടതി വെറുതെ ശ്ചിട്ടു

വിധി പ്രഖ്യാപനം ഉണ്ടാകുന്ന സാഹചരൃത്തിൽ കോട്ടതിയും പരിസരവും കനത്ത സുരക്ഷാ വലയത്തിലാണ്

ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാനത്ത് നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നതിന് പശ്ചിമബംഗാൾ ഗവൺമെന്റ് ശക്തമായ നടപടി കൈക്കൊള്ളണമെന്ന് കേന്ദ്രം കർശന നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതിന് മറുപടിയായി ആവശ്യമായ നടപടികൾ സംസ്ഥാനം സ്വീകരിച്ചു എന്ന മറുപടിയാണ് ലഭിച്ചത്

പൊതുതിരഞ്ഞെടുപ്പിനുശേഷവും പശ്ചിമ ബംഗാളിൽ തുട രുന്ന അക്രമ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ആശങ്ക രേഖപ്പെടുത്തി ഭാങ്കിപ്പാരയിൽ തിരഞ്ഞെടുപ്പിനുശേഷം നടന്ന അക്രമ സംഭവങ്ങളിൽ കഴിഞ്ഞ ദിവസം നാല് പേർ കൊല്ലപ്പെട്ടിരുന്നു

അറബിക്കടലിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമീപത്തായി നാളെയോ മറ്റന്നാളോ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ട്

മീ അകലെ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റ് പടിഞ്ഞാറൻ തീരത്തടുക്കാൻ സാധ്യതയില്ലെങ്കിലും പ്രദേശത്ത് കാറ്റിന് ശക്തി കൂടാനിടയുള്ളതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കാലവർഷത്തെ കാറ്റ് പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്

ഉത്തരേന്തൃയിൽ ഈ ആഴ്ച കൂടി ഉഷ്ണ തരംഗം അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

രാജ്യത്തെ വിവിധ ജല സംഭരണികളിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് യോഗം വിളിച്ചത്

ആറാഴ്ചത്തേക്ക് തൽസ്ഥിതി തുടരാനാണ് സുപ്രീംകോടതിയുടെ അവധിക്കാല ബഞ്ച് ഉത്തരവിട്ടത്

തീരദേശ പരിപാലന നിയമം ലംഘിച്ച് അനധികൃതമായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം പൊളിച്ചുമാറ്റണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ശരിവച്ചിരുന്നു ഇതിന്റെ സമയപരിധി അവസാനിച്ചതോടെയാണ് ഫ്ളാറ്റിലെ താമസക്കാർ റിവ്യൂ ഹർജി നൽകിയത് സംസ്ഥാന ഗവൺമെന്റ് പുനപരിശോധന ഹർജി നൽകില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു

എഞ്ചിനീയറിംഗിൽ ഒന്നാം റാങ്ക് ഇടുക്കി സ്വദേശിക്ക്

കേരളത്തിൽ നാലാംവർഷത്തിലേക്ക് കടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം ഇന്ന് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് റിപ്പോർട്ട് നൽകി പ്രകാശനം നിർവഹിക്കും ഗവൺമെന്റ് പ്രഖ്യാപിച്ച നയങ്ങൾ പ്രളയാനന്തര പുനർനിർമാണം കേരള പുനർനിർമാണ പദ്ധതി കിഫ്ബി മറ്റു പ്രധാന പദ്ധതികളും പ്രവർത്തനങ്ങളും മികവിനു കിട്ടിയ അംഗീകാരങ്ങൾ തുടങ്ങിയവയും പ്രോഗ്രസ് റിപ്പോർട്ടിനൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രകാശനശേഷം ഗവൺമെന്റ് വെബ്സൈറ്റിലും പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും

ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി സെമിഫൈനലിൽ ഇടം ഉറപ്പിക്കാനായുള്ള മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഉസ്ബെക്കിസ്ഥാനെ നേരിടും